സായുധ സേനയ്ക്കു വേണ്ടി എ

ഇന്ത്യ റഷ്യ സഹകരണത്തിന്റെ നാഴികകല്ലായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ഇന്തോ റഷ്യ പ്രൈവറ്റ് ലിമിറ്റഡ്

എന്നാൽ എൻ

എ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ആധുനിക ആയുധങ്ങൾ സേനയ്ക്ക് അനിവാര്യമാണെന്ന് മനസ്സിലാക്കുകയും ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്തു

എന്നാൽ എൻ

രാജ്യത്തെ കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിലും ഗവൺമെന്റ് ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചു പുതിയതരം വിത്തിനങ്ങൾ വളം കീടനാശിനി തുടങ്ങിയവ കർഷകർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ലഭ്യമാകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു

ഭീകരവാദത്തിനെതിരായി നിലപാട് എടുക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം യോജിച്ച് പ്രവർത്തിക്കുന്നില്ലെന്നും പ്രശ്മാനമന്ത്രി കുറ്റപ്പെടുത്തി ബിഹാറിൽ എൻ

എ യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ നരേന്ദ്രമോദി മോദിയുടെ ഭര്ണം അവസാനിപ്പിക്കണമെന്ന് പറയുന്ന പ്രതിപക്ഷം ഭീകരപ്രവർത്തനങ്ങളെ ചെറുക്കുവാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് പാട്നയിലെ ഗാന്ധി മൈതാനിൽ സങ്കല്പ് റാലിയിൽ സംസാരിക്കവെ ശ്രീ മോദി പറഞ്ഞു

രാജ്യത്തെ സായുധ സേനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം അവർ ശത്രുക്കൾക്ക് സന്തോഷം പകരുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

പ്രതിപക്ഷത്തിന്റെ ഈ നിലപാട് ശത്രുക്കളെ പ്രോത്സാഹിപ്പിക്കാനേ ഉപകരിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു രാജൃത്തിന്റെ കാവൽക്കാരനായ തന്നെ ഉപദ്രവിക്കുവാനാണ് കോൺഗ്രസ്സ് ശ്രമിക്കുന്നത്

മുഖ്യമന്ത്രി നിതീഷ്കുമാർ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ തുടങ്ങിയവരും റാലിയിൽ പങ്കെടുത്തു

ഹന്ത്വാരാ മേഖലയിലെ ഭീകര സാന്നിധ്യത്തെക്കുറിച്ചുള്ള അറിവിനെത്തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി സംയുക്ത സുരക്ഷാസേനാംഗങ്ങൾ നടത്തിയ തെരച്ചിലിനിടെയാണ് പോരാട്ടം ആരംഭിച്ചത് പോരാട്ടത്തിൽ വധിക്കപ്പെട്ട ഭീകരരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തായി സംസ്ഥാന പോലീസ് മേധാവി ദിൽബാഗ് സിംഗ് ആകാശവാണിയോട് പറഞ്ഞു

ലാഹോറിൽ നിന്നും ട്രെയിൻ നാളെ ഇന്ത്യയിലേക്ക് മടക്കയാത്ര നടത്തും എയർഫോഴ്സ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് കൈമാറിയതിനെ തുടർന്നാണ് ട്രെയിൻ സർവ്വീസ് പുനരാരംഭിക്കാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചത് വ്യാഴാഴ്ചയാണ് ട്രെയിൻ സർവ്വീസ് ഇന്ത്യ നിർത്തി വച്ചത്

മനുഷ്യക്കടത്ത് തടയൽ ഉൾപ്പെടെയുള്ള ബില്ലുകൾ അവതരിപ്പിക്കുന്നത് തടസ്സപ്പെടുത്തിയ രാജ്യസഭാ നടപടികളിൽ മന്ത്രി നിരാശ പ്രകടിപ്പിച്ചു വനിതകൾക്ക് വേണ്ടിയുള്ള ദേശീയ കമ്മീഷന്റെ നിയമ ഉപദേശക ബോർഡ് ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും വനിതാ ക്ഷേമത്തിനായി സമയബന്ധിതമായ നടപടികൾ സ്വീകരിക്കാൻ ഇത് സഹായകമാകുമെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

ആലുവ മണപ്പുറത്ത് ശിവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് പുലർച്ചെ തുടക്കമായി

ആലുവ മണപ്പുറത്തേക്ക് കെ എസ് ആർ

തിരുവല്ലം തിരുനാവായ തിരുനെല്ലി ശംഖുമുഖം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ സ്നാനഘട്ടത്തിൽ പതിനായിരങ്ങൾക്ക് ബലിതർപ്പണത്തിന് ആവശ്യമായ സൌകരൃങ്ങൾ ഒരുക്കിയിട്ടുണ്ട്

റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി ജിം ബാങ്ക്സ് ആണ് നിയമനിർമ്മാണത്തിനായി കോൺഗ്രസിനെ സമീപിച്ചത് സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബ്ലന്ധിച്ചാണ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്

താലിബാൻ സഹസ്ഥാപകൻ മുല്ല അബ്ദുൾ ഘാനി ബരാദറാണ് താലിബാൻ വിഭാഗത്തിന് ചർച്ചയിൽ നേതൃത്വം നൽകുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും എല്ലാ വിദേശ സേനകളെയും പിൻവലിക്കുക എന്നതാണ് തങ്ങളുടെ പ്രധാന ആവശ്യമെന്ന് താലിബാൻ വക്താവ് വൃക്തമാക്കിയിട്ടുണ്ട് അതേസമയം താലിബാൻ വെടിനിർത്തൽ നടപ്പാക്കുക തങ്ങളുടെയും തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നേരെയും ആക്രമണം നടത്താൻ അഫ്ഗാനിസ്ഥാനെ വേദിയാക്കാതിരിക്കുക എന്നീ ആവശ്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്

വീടുകൾ തകർന്നും വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടുമാണ് മരണങ്ങൾ സംഭവിച്ചതെന്ന് മാനുഷിക പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയുള്ള ഐകൃരാഷ്ട്രീ സ്ട്രികേന്ദ്രം അറിയിച്ചു

കഴിഞ്ഞ ഏഴുവർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രളയമാണിതെന്നും പ്രദേശത്ത് തമ്പടിച്ചിരുന്ന നിരവധി ഇടയന്മാരും കന്നുകാലികളും ഒഴുക്കിൽപ്പെട്ടതായും കാണ്ഡഹാർ ഡെപ്യൂട്ടി ഗവർണർ അബ്ദുൾ ഹനാൻ മൊനീബ് അറിയിച്ചു

തന്റെ മെഡൽ നേട്ടം വ്യോമസേനാ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന് സമർപ്പിക്കുന്നതായി ബജ്റംഗ് പുനിയ ട്വിറ്ററിൽ കുറിച്ചു

കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് അഭിമുഖമായി നിർമ്മിച്ച പ്രവേശന കവാട കമാനം എൻ